അമൃത് മഹോത്സ്വത്തിന് തുടക്കം സബർമതി ആശ്രമത്തിൽ നിന്നുള്ള പദയാത്ര പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു

നരേന്ദ്രമോദി പങ്കെടുക്കും

സംസ്ഥാനങ്ങളിലെ ്തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നിഷ്പക്ഷ ന് അംഗങ്ങളാകണമെന്ന് സുപ്രീംകോടതി

പത്രികകൾ സ്വീകരിക്കാൻ തുടങ്ങി

യിൽ ഇന്ത്യ ബാറ്റ് ചെയ്യുന്നു

ദണ്ഡിയാത്രയുടെ വാർഷികത്തിലാണ്ട് അമൃത മഹോത്സവം ആരംഭിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ട്ടിക്കാട്ടി കൂടുതൽ വിവരങ്ങളുമായി അഞ്ചു

അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് പദയാത്രയും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു

ഇന്ത്യയ്ക്ക് സാംസ്കാരികമായി വലിയ സമ്പന്നതയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നേരത്തെ അഹമ്മദാബാദിലെത്തിയ മോദിയെ സബർമതി ആശ്രമത്തിലേയ്ക്ക് ഗവർണർ ആചാര്യ ദേവ്വ്രതും ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാനിയും അനുഗമിച്ചു

സ്വതന്ത്ര ഭാരതത്തിന്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ സാക്ഷാത്കരിക്കാനാകും

സ്വന്തമായാണ് കോവിഡ് പ്രതിരോധ മരുന്ന് ഇന്ത്യ വികസിപ്പിച്ചത് എന്ന് ശ്രീ

കോവിഡിനെതിരെ പോരുട്ടാൻ മറ്റ് രാജ്യങ്ങളെ ഇന്ത്യ സഹായിക്കുന്നുണ്ടെന്നും അദ്ദേഹം പുരുഷ്ടതു

ചരിത്ര പ്രസിദ്ധമായ ദണ്ഡിയാത്രയുടെ പുനരാവിഷ്ക്കരണം അദ്ദേഹം ഉദ്ഘാടനം നിർവ്വഹിക്കുകയുണ്ടായി

ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ സ്വയം പര്യാപ്ത ഇന്തൃയിലേക്ക് നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം അഭിനന്ദിച്ചു

ഇതിനായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം നിരക്ഷരത അഴിമതി ലിംഗ വിവേചനം തുടങ്ങിയ സാമൂഷ്ട്രീക തിന്മകളെ ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട്

വിർചലായി നടക്കുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിദെ സുഗ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ എന്നിവർ പങ്കെടുക്കും പ്രാദേശിക രാജ്യാന്തര വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയാണിതെന്ന് ശ്രീ

കാലാവസ്ഥാ വൃതിയാനം സാങ്കേതിക വിദ്യ സമുദ്ര സുരക്ഷ എന്നിവയും ചർച്ചയാകുമെന്നാണ് സൂചന

അടുത്ത ഏതാനും മാസങ്ങൾക്കുളളിൽ ബാക്കി നാല് സംസ്ഥാനങ്ങളെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളെയും ഈ സംവിധാനത്തിൽ ഉൾപ്പെടുത്തും

കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടക്കേണ്ടിയിരുന്ന മുൻസിപ്പൽ കൌൺസിൽ തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കാൻ ് ഗോവ നിയമ സെക്രട്ടറിയെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച സർക്കാരിനെ കോടതി വിമർശിച്ചു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത പ്രധാനമാണ് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധിക ചുമതല നൽകുന്നത് ഭരണഘടനയെ പരിഹസിക്കുംപോലെയാണെന്ന് കോടതി പറഞ്ഞു

വനിതകൾക്ക് സീറ്റ് സംവരണം നടപ്പാക്കാത്തതിനാണ് ഇവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറത്തു വന്നതോടെയാണ് പത്രികകൾ സ്വീകരിക്കാൻ തുടങ്ങിയത്

ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തുന്നതിനെയും അപലപിച്ചു

ജെ പി സ്ഥാനാർത്ഥി ശുഭേന്ദു അധികാരി നന്ദിഗ്രാം മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു

സംയുക്ത മോർച്ച പിന്തുണയ്ക്കുന്ന സി

തുടർച്ച അഭിപ്രായഐക്യം ഏകീകരണം എന്നിവയ്ക്കായി ബ്രിക്സ് രാജൃങ്ങൾ എന്നതായിരുന്നു ഈ വർഷത്തെ കൂടിക്കാഴ്ചയുടെ പ്രതിപാദ്യ വിഷയം

അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ മത്സരം തുടരുന്നു

മഴയെ തുടർന്ന് ഡക് വർത്ത് ലൂയിസ് നിയമപ്രകാരമാണ് ദക്ഷിണാഫ്രിക്കയുടെ വിജയം